ബോധവത്കരിക്കുന്നതിനുള്ള പ്രത്യേക കൃാമ്പയിന് ഇന്ന് തുടക്കം

സംസ്ഥാനത്ത് കനത്ത ത്രികോണ മത്സരം നടക്കുന്ന നേമം കഴക്കൂട്ടം മഞ്ചേശ്വരം വട്ടിയൂർക്കാവ് കോന്നി മണ്ഡലങ്ങളിലടക്കം രാവിലെ മുതൽ കനത്ത പോളിങാണ് വോട്ടിങ് യന്ത്രങ്ങൾ തകരാറിലായ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതേ തൂടർന്ന് ചില മണ്ഡലങ്ങളിൽ വോട്ടിംഗ് വൈകി രാത്രി ഏഴ് വരെയാണ് പോളിംഗ് സമയം അവസാന ഒരു മണിക്കൂർ കോവിഡ് രോഗികൾക്കും നിരീക്ഷണത്തിലുളളവർക്കും വോട്ടു ചെയ്യാം ഇരട്ട വോട്ട് തടയാനുള്ള ക്രമീകരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്

ഇതുവരെ ശതമാനം പോളിംഗാണ് രേഖപ്പെടുത്തിയത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നത് ആകാശവാണി പ്രതി നിധി നീരജ് ലാൽ

വിശദാംശങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ശ്രീജി ശ്രീധർ ചേരുന്നു

ശക്തമായ ത്രികോണ മൽസരം നടക്കുന്ന പാലക്കാട് നിയോജകമണ്ഡത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് പോളിംഗിനോട് പ്രതികരിക്കുന്നത്

ഇത്തവണ പോളിംഗ് ശതമാനത്തിൽ റെക്കോർഡ് വർദ്ധന ഉണ്ടാക്കാൻ കഴിയണം കൂടുതൽ യുവ വോട്ടർമാർ രംഗത്ത് വരണമെന്നും പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു

വാക്സി നേഷൻ സംബന്ധിച്ച വിലയിരുത്തലുകൾക്കായി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഉന്നതതല യോഗം ചേർന്നിരുന്നു മാർഗ്ഗനിർദ്ദേശങ്ങളെക്കുറിച്ച് കോവിഡ് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് ഇന്ന് മുതൽ ് പ്രത്യോക കൃാമ്പയിൻ ആരംഭിക്കും